തെറ്റിദ്ധരിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അപകടകരമായ വാഗ്ദാനങ്ങളെന്ന് ബി ജെ പി

കേൾക്കാൻ സുപ്രിംകോടതി വിസമ്മതിച്ചു

ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും മത്സരം രാത്രി എട്ടിന്

നാമനിർദ്ദേശ പത്രിക സ്ട്മ്ർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ ഒൻപതാണ്

സംസ്ഥാനത്തിന്റെ മധ്യ ബുന്ദേൽഖണ്ഡ് മേഖലകളിലാണ് വോട്ടെടുപ്പ്

രാഷ്ട്രീയപാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ ഓരോ ദിവസവും ഒട്ടേറെ തെരഞ്ഞെടുപ്പ് റാലികളെയാണ് അഭിസംബോധന ചെയ്യുന്നത്

ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിശക്തമാണ് മുൻനിര നേതാക്കൾ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി സുവർണ്ണ വോയിസ് ഒഡീഷയിലും ബീഹാറിലുമാണ് ഇന്ന് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തത് ജനങ്ങളുടെ പുരോഗതി ഉറപ്പു വരുത്താൻ നിരവധി പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സംസ്ഥാനത്തിന്റെ ത്വരിത വികസനത്തിന് കേന്ദ്രവുമായി സഹകരിക്കാത്ത നവീൻ പട്നായിക്കിന്റെ ഗവൺമെന്റിനെ പ്രധാനമന്ത്രി വിമർശിച്ചു പടിഞ്ഞാറൻ ഒഢീഷയിലെ ഭവാനിപട്നയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ മോദി

സംവരണ വിഷയമുയർത്തി കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ബീഹാറിലെ ജാമുവിൽ പ്രധാനമന്ത്രി പറഞ്ഞു

വിവിധ രാഷ്ട്രിടീയ് പാർട്ടികളായ കോൺഗ്രസ് ബി ജെ പി മിസോ നൂഷ്ണൽ ഫ്ര ് സോറം പീപ്പിൾസ് മൂവ്മെന്റ് എന്നീ പാർട്ടിക്കളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

പാവപ്പെട്ടവർക്ക് മിനിമം വരുമാനവും തൊഴിലും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു

കോൺഗ്രസുകാർക്ക് രാജ്യദ്രോഹം കുറ്റമല്ല എന്നും രാജ്യദ്രോഹ നിയമം റദ്ദാക്കുമെന്ന് പറയുന്നത് തീവ്രവാദികളെ സംരക്ഷിക്കാനുള്ള കോൺഗ്രസ് ശ്രമമാണെന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് പ്രകടന പത്രിക നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ലെന്നും ശ്രീ ജെയ്റ്റ്ലി പ്രസ്താവിച്ചു

ലോക്സഭ വോട്ടെടുപ്പിനോട് അനുബന്ധിച്ച് തന്നെയാണ് ഈ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുക

റെയിൽവേ ടിക്കറ്റിലും ബോർഡിംഗ് പാസിലും അച്ചടിച്ച പ്രധാനമന്ത്രിയുടെ ഫോട്ടോ നീക്കണമെന്ന നിർദ്ദേശം പാലിച്ചില്ല എന്ന പരാതിയിലാണ് വിശദീകരണം ആവശ്യപ്പെട്ടത് വ്യാഴാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് കമ്മിഷന്റെ നിർദ്ദേശം

പട്ടേൽ സമരവുമായി ബന്ധപ്പെട്ട് ര ് വർഷം തടവിനാണ് ഗുജറാത്ത് കോടതി നേരത്തെ ഹാർദ്ദിക്കിനെ ശിക്ഷിച്ചത്

ശ്രീ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് എൻ

ജിയുടെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് വിമാനം ഇറങ്ങുന്ന അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലെത്തുക

തന്റെ പ്രതിമകൾ സ്ഥാപിച്ചത് ജനങ്ങളുടെ താൽപര്യപ്കാരമാണെന്നും സത്യവാങ്മൂലത്തിൽ മായാവതി അവകാരുപ്പെട്ടു സ്വയം മഹത്വൽക്കരിക്കാനല്ല സംസ്ഥാന നിയമസഭ്യുടെ അംഗീകാരത്തോടെ ബജറ്റിൽ വകയിരുത്തിയ പണമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതെന്നും ശ്രീമതി മായാവതി കോടതിയെ അറിയിച്ചു

വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊ ് ജമ്മുകാശ്മീരിൽ നിയന്ത്രണ രേഖയിലെ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തുടർച്ചയായി വെടിവയ്പ്പ് നടത്തുന്നതായും അദ്ദേഹം ആരോപിച്ചു യാതൊരു പ്രകോപനവുമില്ലാതെയുള്ള പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിനും വെടിവയ്പ്പിനും ഇന്ത്യൻ സേന തക്ക മറുപടി നൽകുന്നു ന്നും അതേസമയം അന്താരാഷ്ട്ര അതിർത്തിയിൽ കരാർ ലംഘനമില്ലെന്ന് ഉറപ്പു വരുത്തുന്നു ന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷാ രീതികൾ വിലയിരുത്താൻ ര ു ദിവസത്തെ സന്ദർശനത്തിന് ജമ്മുവിലെത്തിയതായിരുന്നു ശ്രീ മിശ്ര

ഇന്ത്യ ശക്തമായി ചെറുത്ത് നിന്നതായി സ്സെന്ികവക്താവ് അറിയിച്ചു

ഓട്ടിസം ബാധിച്ചവർക്ക് സഹായം എത്തിക്കുന്നതിന്റെ പ്രാധാനൃം വിളിച്ചോതുന്നതാണ് ഈ ദിനത്തിലെ ബോധവത്ക്കരണ പരിപാടികൾ ഓട്ടിസം ബാധിച്ചവരെ സഹായിക്കാനായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര പ്രമേയം ആവശ്യപ്പെടുന്നത്

രാത്രി എട്ട് മണിക്ക് ജയ്പൂരിലാണ് മത്സരം തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിലും പരാജയപ്പെട്ട റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും കളിച്ച മൂന്ന് മത്സരങ്ങളിലും പരാജയപ്പെട്ട രാജസ്ഥാൻ റോയൽസിനും ഈ മത്സരം ജയിക്കേ തു ്

പുരുഷ വിഭാഗത്തിൽ സമീർ വർമ്മ ലോക ര ാം നമ്പർ താരം ചൈനയുടെ ഷി യൂകിയോട് പരാജയപ്പെട്ടു എന്നാൽ ഇന്ത്യയുടെ പ്രണവ് ജെറി സിക്കി റെഡി സഖ്യം രൂ ാം റൌ ിൽ കടന്നു വനിതാ താരങ്ങൾക്ക് ഇന്ന് മത്സരം ഉ ് ായിരുന്നില്ല

ചൊവ്വ ബുധൻ വെളളി ശനി ഞായർ ദിവസങ്ങളിലാണ് സർവീസ്